ഊർജ്ജിതമാക്കാൻ പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയതായി ആരോഗൃക്കമന്ത്രി കെ

പശ്ചിമബംഗാളിൽ നാലാംഘട്ട വോട്ടെടുപ്പ് നാളെ

വയ്ക്കില്ലെന്ന് റെയിൽവെ ബോർഡ് ചെയർമാൻ

എൽ

അല്പസമയത്തിനകം തുടക്കമാവും ആദ്യ മത്സരത്തിൽ മുംബൈ ഇന്ത്യൻസ് റോയൽചലഞ്ചേഴ്സ് ബാംഗ്ലൂരിനെ നേരിടും

ശൈലജ ഇൻട്രോ സംസ്ഥാനത്തെ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങൾ ശക്തമാക്കുമെന്ന് ആരോഗൃ മന്ത്രി കെ

ഇതിന്റെ ഭാഗമായി പ്രത്യേക കർമ്മ പദ്ധതി തയ്യാറാക്കിയതായി കോവിഡ് ഉന്നതതല യോഗത്തിന് ശേഷം മന്ത്രി അറിയിച്ചു

ആരോഗ്യ പ്രശ്നങ്ങളില്ലാത്ത കോവിഡ് രോഗികൾക്ക് വീടുകളിൽ ചികിത്സ തുടരാം ആവശ്യമായ സൌകര്യങ്ങൾ വിട്ടിലുള്ളവർക്ക് മാത്രമേ ഇതിന് അനുവാദമുള്ളെന്നും മന്ത്രി വ്യക്തമാക്കി രോഗികളുടെ എണ്ണം കൂട്ടിയാൽ കോവിഡ് ചികിത്സ ക്കുന്ദ്രങ്ങൾ വർധിപ്പിക്കും

കോവിഡ് കേസുകൾ വർധിക്കുന്ന സാഹചര്യത്തിൽ ചെയിൻ ബ്രേക്ക് ചെയ്യുക എന്നതാണ് പ്രധാനം

കോഴിക്കോട് എറണാകുളം കണ്ണൂർ തിരുവനന്തപുരം കോട്ടയം തൃശൂർ മലപ്പുറം എന്നീ ജില്ലകളിലാണ് ഇന്ന് കൂടുതൽ പേർക്ക് രോഗം സ്ഥിരീകരിച്ചത്

ഇന്ന് എട്ട് പുതിയ ഹോട്ട്സ്പോട്ടുകൾ ആണ് ഉള്ളത് ഹർഷവർധൻ രാജ്യത്ത് കോവിഡ് കേസുകൾ വർദ്ധിച്ചുവരുന്നതിൽ കേന്ദ്ര ആരോഗ്യ മന്ത്രി ഡോ

മുഖ്യമന്തി കോവിഡ് ബാധയെ തുടർന്ന് കോഴിക്കോട് മെഡിക്കൽ കോളെജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ആരോഗ്യനില തൃപ്തികരമെന്ന് ആശുപത്രി വൃത്തങ്ങൾ അറിയിച്ചു

കോവിഡ് ബാധിതനായ് മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി തിരുവനന്തപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്

പണം കെട്ടിവച്ചാൽ നാവികർക്ക് എതിരായ ക്രിമിനൽ കേസിലെ നടപടികൾ അവസാനിപ്പിക്കുന്നതിൽ എതിർപ്പ് ഇല്ലെന്ന് കേരളം സുപ്രീം കോടതിയെ ് അറിയിച്ചു

വിവിധയിടങ്ങളിൽ വോട്ടിങ് യന്ത്രങ്ങളുടെയും പോളിങ് സാമഗ്രികളുടെയും വിതരണം ആരംഭിച്ചു കഴിഞ്ഞു

കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാപ്രതിനിധി കെ ഒ ശശിധരൻ

കുടമാറ്റ സ്ഥലത്ത് ജനങ്ങൾ തടിച്ചുകൂടുന്നത് കുറയ്ക്കാൻ വേണ്ടിയാണ് തീരുമാനം

കാർഗോ വിഭാഗത്തിൽ ഫയർ അലാറാം മുഴങ്ങിയതിനെ തുടർന്നാണ് വിമാനം എമർജൻസി ലാൻഡിങ് നടത്തിയത്